ചുഴലിക്കാറ്റ് മുന്നിറ്റിയി്പ്പിനെ തുടർന്ന് തമിഴ്നാട് പുതുച്ചേരി ന് തീരങ്ങൾ അതീവ ജാഗ്രതയിൽ

ഐ

ഹൈദരാബാദ് എഫ്

കോവിഡ് വ്യാപനം രൂക്ഷമായ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ സ്ഥിതി പ്രധാനമന്ത്രി വിലയിരുത്തും രാജ്യത്ത് കോവിഡ് വ്യാപനത്തിൽ കുറവു വന്നെങ്കിലും ചില സംസ്ഥാനങ്ങളിൽ വീണ്ടും രോഗപ്പകർച്ച കൂടിയതായാണ് സൂചന ഗുജറാത്ത് ഉൾപ്പെടെ ഏതാനും സംസ്ഥാനങ്ങളിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിട്ടുണ്ട്

ആർ ല്ലാ്ബ് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ ന്യൂഡൽഹി ഐ

എം

സാധാരണക്ക്ടൂർക്ക് വളരെ പ്രയോജനപ്രദമായ ലബോറട്ടറിയിൽ നിന്ന് ആറ് മുതൽ എട്ട് മണിക്കൂറിനുള്ളിൽ പരിശോധനാ ഫലം ലഭിക്കും

പതിറ്റാണ്ടുകളായി പകൽവെളിച്ചം കാണാത്ത നടപടികളാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്നത്

കമ്പനി നികുതിയിൽ ഇളവ് നൽകുന്നതിലൂടെ ബഹുരാഷ്ട്ര കമ്പനികൾക്കും ചെറിയ കമ്പനികൾക്കും പ്രയോജനം ലഭിക്കുന്നുണ്ടെന്നും അവർ പറഞ്ഞു

ഐ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ജനങ്ങളുടെ അവകാശങ്ങളും വിശ്ച്ച്സവും സംരക്ഷിക്കുന്നതിനു വേണ്ടിയായിരുന്നു ഗുരുവിട്ന്റ് ജീവത്യാഗമെന്ന് രാഷ്ട്രപതി പറഞ്ഞു ജനസേവനത്തിനു പ്രേണ്ടി ഒന്നിക്കാനും മൈത്രിയും രാജ്യസ്നേഹവും വളർത്താനും ഗുരുതേജ് ബഹദൂറിന്റെ രക്തസാക്ഷിത്വം നമുക്ക് പ്രചോദനമാണെന്നും ശ്രീ

കോവിഡിന്റെ സാഹചര്യത്തിൽ തീയതി നീട്ടണമെന്ന് പെൻഷൻകാരുടെ സംഘടനകൾ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് പേഴ്സണൽ മന്ത്രാലയം അറിയിച്ചു

ആന്ധ്രാപ്രദേശ് തമിഴ്നാട് പുതുച്ചേരി സംസ്ഥാനങ്ങളിലാണ് ചുഴലിക്കാറ്റ് വീശുമെന്ന് മുന്നറിയിപ്പുള്ളത് ഈ സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാരുമായി വീഡിയോ കോൺഫറൻസിംഗിലൂടെ യായിരുന്നു യോഗം ചുഴലിക്കാറ്റ് മുന്നറിയിപ്പിനെ തുടർന്ന് തമിഴ് നാട് പുതുച്ചേരി തീരത്ത് ജാഗ്രത തുടരുന്നു

ഗൃഹസന്ദർശനവും പൊതുദ്യിാൾവും പുരോഗമിക്കുകയാണ് സ്ഥാനാർത്ഥികളുടെ ത്തെർഞ്ഞെടുപ്പ് ചിഹ്നം സംബന്ധിച്ച നടപടികളും പൂർത്തിയായി

ഭേദഗതി പ്രഖ്യാപിക്കപ്പെട്ടതോടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് വൃതൃസ്തമായ അഭിപ്രായങ്ങളാണ് ഉയർന്നുവന്നത് ഈ സാഹചര്യത്തിലാണ് തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു നിയമസഭയിൽ വിശദമായ ചർച്ച നടത്തി എല്ലാ ഭാഗത്തുനിന്നും അഭിപ്രായം കേട്ട ശേഷം പോലീസ് നിയമ ഭേദഗതി നടപ്പാക്കുന്ന കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ശൈത്യകാലത്തെ നേരിടാൻ പുൽവാമ ഷോപ്പിയാൻ ജില്ലകളുടെ മുന്നൊരുക്കങ്ങളും അദ്ദേഹം അവലോകനം ചെയ്തു

ഗോലഘട്ട് തിൻസുകിയ തുടങ്ങിയ അപ്പർ അസം ജില്ലകളിൽ പദ്ധതി പൂർത്തിയാവുകയാണെന്ന് കിഴക്കൻ അസം സർക്കിളിലെ ഫോറസ്റ്റ് കൺസർവേറ്റവർ നാരായൺ മഹന്ത ആകാശവാണി വാർത്തകളോട് പറഞ്ഞു

മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ പേർ ചികിത്സയിലുള്ളത്

അഹമ്മദാബാദ് സൂററ്റ് വഡോദര രാജ്കോട്ട് എന്നീ നഗരങ്ങളിലാണ് നിയന്ത്രണം കൂടുതൽ കർശനമാക്കിയത്

ഹാനികരമല്ലാത്ത വിധത്തിൽ പരമാവധി പ്രയോജന്പ്പെടുത്തുക നീതി ഉറപ്പാക്കുക പക്ഷപാതിത്വം ഇല്ലാതാക്കുക്ട് സൂതാരൃത ഉറപ്പാക്കുക എന്നീ ലക്ഷ്യങ്ങളിലൂന്നിയാണ് ക്രൂപ്പരേഖ തയ്യാറാക്കിയത്

മദ്യത്തിനൊപ്പം അവശൃ ഭക്ഷ്യവസ്തുക്കൾ ലഭൃമല്ലാത്ത ബാറുകളും പബ്ബുകളും രണ്ടാമത്തെ വിഭാഗത്തിലുള്ള മേഖലകളിൽ അടച്ചിടുമെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പാർലമെന്റിനെ അറിയിച്ചു

കോവിഡ് വാക്സിനായുള്ള ലോകത്തിന്റെ കാത്തിരിപ്പിന് പ്രതീക്ഷ പകരുന്നതാണ് ബ്രിട്ടനിൽ നിന്നുള്ള വാർത്ത

എൽ ഫുട്ബോളിൽ ഒഡീഷ്യ്ക്കെതിരെ ഹൈദരാബാദ് എഫ് സിക്ക് ജയം എതിരില്ലാത്ത ഒരും ഗോളിനാണ് ഹൈദരാബാദ് വിജയിച്ചത്